സി

ഒരുക്കങ്ങൾ പുരോഗ്മീക്കുന്നു ബുധനാഴ്ച നടക്കുന്ന ഭൂമി പൂജയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും

കോവിഡ് വ്യാപനം തടയാനുള്ള നടപടികൾ കർക്കശമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം നഗരത്തിൽ ലോക്ഡൌൺ തുടരുന്നു

പല ഭാഷകളുടെയും മാതാവാണ് സംസ്കൃതമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ

മൂന്നാംഘട്ട പരിശോധന തുടങ്ങുന്നതിന് മുമ്പ് വിശദമായ ഡാറ്റ സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് സ്ത്രിലവിൽ രണ്ടും മൂന്നും ഘട്ട പരീക്ഷണങ്ങൾ ബ്രിട്ടനിലുള്ള മുന്നാംഘട്ട പരീക്ഷണം ബ്രസീലിലും ഒന്നും രുണ്ടു് എഘട്ട പരീക്ഷണങ്ങൾ ദക്ഷിണാഫ്രിക്കയിലും നടക്കുകുള്ളാണ്

നെഗറ്റീവ് ആർ ടി

സി

വീഡിയോ കോൺഫറൻസിംഗിലൂടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും സംവദിക്കാൻ ഇത് വഴിയൊരുക്കും ഇത് രോഗികളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷ ആശുപത്രി വാർഡുകളിൽ മൊര്ഭുബൽ ഫോണുകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും അനുവദിക്കുന്നില്ലെന്ന് കാണിച്ച് ഔഗ്ികളുടെ ബന്ധുക്കളിൽ ചിലർ പരാതി നൽകിയതിനെ ്രിത്യുടർന്നാണ് കേന്ദ്രം ഇക്കാര്യം നിർദ്ദേശിച്ച് സംസ്ഥാന ആരോഗൃം പ്രിൻസിപ്പൽ സെക്രട്ടറിമാർക്ക് കത്തയച്ചത്

പരിശോധനകളുടെ എണ്ണം രണ്ടു കോടിയ്ക്കു മുകളിലായതായി ഐ സി

ബുധനാഴ്ച നടക്കുന്ന ഭൂമി പൂജയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും രാജ്യത്തെ പ്രമുഖ പുണ്യ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പുണ്യജലവും മണ്ണും അയോധ്യയിലേയ്ക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്

ദിനത്തോട് അനുബന്ധിച്ച് കേന്ദ്രമന്ത്രി പ്രകാശ് ജാപ്ദേക്കർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു

ഭാഷകളുടെ വളർച്ചയ്ക്ക് സംസ്കൃതത്തിന് വലിയ പ്രാധാന്യമാണുള്ളതെന്ന് കേന്ദ്രമന്ത്രി രമേഷ് പൊക്രിയാൽ നിഷാങ്ക് അഭിപ്രായപ്പെട്ടു

ലോക സൌഹൃദ ദിനത്തോട് അനുബന്ധിച്ച് ഇസ്രായേൽ പ്രസിഡന്റ് റ്യൂവൻ റിവ്ലിൻ നൽകിയ ആശംസയ്ക്ക് മറുപടിയായി ട്വിറ്ററിലാണ് ശ്രീ

കൈത്തണ്ടയിൽ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും വിശ്വാസത്തിന്റെയും പവിത്രമായ ചരടാണ് രാഖി എന്ന് സന്ദേശത്തിൽ ശ്രീ രാംനാഥ് കോവിന്ദ് പറഞ്ഞു

ഇന്ത്യയിലുടനീളവും ലോകമെമ്പാടും രക്ഷാ ബന്ധൻ ദിനത്തിൽ സഹോദരീ സഹോദരന്മാർ തമ്മിലുള്ള പവിത്രമായ ബന്ധമാണ് സ്മരിക്കപ്പെടുന്നതെന്നും സഹോദരീ സഹോദര ബന്ധം ശക്തമായ സ്നേഹത്തിന്റെയും ഊട്ടിയുറപ്പിക്കുന്ന വാത്സല്യത്തിന്റെയും ദിനമാണിതെന്നും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു സന്ദേശത്തിൽ പറഞ്ഞു ഈ പുണ്യ ദിനത്തിൽ സമൂഹം പരമ്പരാഗതമായി സ്ത്രീകൾക്ക് നൽകുന്ന അന്തസ്സും ആദരവും ഉയർത്തിപ്പിടിക്കാനും അവരെ ശാക്തീക്രിക്കാനും ഉപരാഷ്ട്രപതി ആവശ്യപ്പെട്ടു

പ്ര്ധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു ആത്മനിർഭർ ഭാരത് പദ്ധതി അംഗീകരിച്ച് വ്യാപാരികൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾ പൂർണമായി ഒഴിവാക്കി രാജ്യത്തെ സ്വയം സഹായക സംഘങ്ങൾ നിർമ്മിച്ച രാഖികളാണ് വിൽപന നടത്തിയത്

സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ ഓൺലൈൻ വഴി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം തടയാനുള്ള നടപടികൾ കർക്കശമാക്കുമെന്ന് മുഖ്യമന്ത്രി വൃക്തമാക്കി

കോവിഡ് വൃാപിക്കുന്നത് സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

അമർഫെറ്റിൽ ആകാശവാണിയോട്

ബി ഐ അന്വേഷണവും ആവശ്യപ്പെട്ട് യു

എഫ് സ്പീക്ക് അപ് കേരള സത്യഗ്രഹം നടത്തുകയാണ് ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് സത്യഗ്രഹം കോവിഡ് മാർഗരേഖ പാലിച്ച് നേതാക്കൾ പാർട്ടി ഓഫീസുകളിലും വസതികളിലുമാണ് സത്യഗ്രഹം നടത്തുന്നത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിലും കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാർട്ടി ആസ്ഥാനത്തും സത്യഗ്രഹം നടത്തുന്നു

എൽ മത്സരങ്ങൾ യു എ ഇയിൽ നടത്താൻ ബി സി

ഐക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി